വോട്ടെണ്ണൽ നാളെ രാവിലെ എട്ടുമുതൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തിരഞ്ഞെടുപ്പു കമ്മീഷൻ

നിയന്ത്രണമെന്ന് മുഖ്യമന്ത്രി പിണ്റായി വിജയൻ

ബാച്ച് ഇന്ത്യയിലെത്തി

കിങ്സ് പോരാട്ടം ടോസ് നേടിയ മുംബൈ ചെന്നൈയെ ബാറ്റിംഗിന് അയച്ചു

മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നത് ഉറപ്പാക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നോഡൽ ഓഫീസറായി നിയമിച്ചിട്ടുണ്ട് പ്രാദേശിക ആരോഗ്യ അധികൃതരെയും കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്

ടിപിസി ആർ പരിശോധനയോ ആന്റിജെൻ ടെസ്റ്റോ നടത്താതെ ഒരു സ്ഥാനാർത്ഥികളെയും പോൾ ഏജന്റിനെയും കൌണ്ടിംഗ് ഹാളിനുള്ളിൽ പ്രവേശിപ്പിക്കില്ല

കൌണ്ടിംഗ് ഏജന്റുകൾക്കും സ്ഥാനാർത്ഥികൾക്കും പി

ബന്ധപ്പെട്ട വരണാധികാരിയുടെ ് പക്കൽ നിന്നും സർട്ടിഫിക്ക്റ്റ് കൈപ്പറ്റുന്നതിന് സ്ഥാനാർത്ഥിക്കൊപ്പം രണ്ടുപേരെ കൂടുതൽ അനുവദിക്കില്ല

സംസ്ഥാനത്ത് നാളെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സ്മ്മേളനത്തിൽ അറിയിച്ചു വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെല്ലാം ക്ടോപിഡ് മാനദണ്ഡം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉദ്യ്പൂവ്രുത്തണം

മഹാമാരിയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭരണകൂടത്തോടൊപ്പം ചേർന്ന് മന്ത്രാലയവും സൈനൃവും നടത്തുന്ന പ്രവർത്തനങ്ങളെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

സി യുടെ മുന്നൂറോളം കേഡറ്റുകളും വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് പ്രതിരോധത്തിനായുണ്ട്

കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ചികിത്സയ്ക്കായുള്ള ഓക്സിജന്റെ ആവശ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള നൈട്രജൻ ഉത്പാദക പ്താന്റുകളെ തിരിച്ചറിയാൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു

ഇവയെ മെഡിക്കൽ ഓക്സിജൻ ഉത്പാദനത്തിനായി വിനിയോഗിക്കുമെന്നും മന്ത്രാലയം അിരിയിച്ചു

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനാണ് സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചത് ആശുപത്രികളുടെ സേവനം മെച്ചപ്പെടുത്താനും ഓക്സിജൻ വെന്റിലേറ്ററുകൾ വൃക്തിഗത സുരക്ഷാ ്ഉപകരണങ്ങൾ സ്കാനർ പരിശോധനാ ഉപകരണങ്ങൾ സുരക്ഷാ കിറ്റുകൾ എന്നിവയ്ക്കായും തുക വിനിയോഗിക്കാം

കൂടുതൽ ആളുകൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് റഷ്യൻ വാക്സിന്റെ വരവ് കരുത്തേകുമെന്ന് വിദേശകാരൃ മന്ത്രാലയ വക്താവ് അറിയിച്ചു

സ്പുട്നിക് വാക്സിൻ രാജ്യത്ത് വലിയതോതിൽ ഉത്പാദിപ്പിക്കാനുള്ള പദ്ധതിയുള്ളതായി അദ്ദേഹം വ്യക്തമാക്കിം അതേസമയം കോവിഡ് മഹാമാരിയ്ക്കെതിരെ പോരാടാൻ ഇന്ത്യയുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്ന് റഷ്യൻ അ്ബാസിഡർ നിക്കോളെ കുദഷേവ് പറഞ്ഞു

ലാബുകൾ പരിശോധനയ്ക്ക് വിസമ്മതിച്ചാൽ നിയമനടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി

ഓൺലൈൻ രജിസ് ട്രേഷനുമായി ബന്ധപ്പെട്ട് വയോജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് കേന്ദ്രങ്ങൾ ആവിഷ്ക്കരിക്കുന്നത്

അത്യാവിശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവർ കൈയിൽ മതിയായ രേഖ്കൾ കരുതണം ദീർഘദൂര ബസുകൾ തീവണ്ടി വിമാനയാത്ര എന്നിവയ്ക്ക് തടസ്സമില്ല കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത വിവാഹം പോലുള്ള ചടങ്ങുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താം

സി വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള അപേക്ഷ തപാൽമാർഗമോ ഇ മെയിൽ മുഖേനയോ ലഭ്യമാക്കിയാൽ മതിയെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചു മിക്ക് പ്രദേശങ്ങളിലും ലോക്ഡൌൺ നടപ്പാക്കിയതും ജനങ്ങൾക്ക് ബാങ്കിൽ നേരിട്ട് എത്തുന്നതിനുള്ള ബുദ്ധിമുട്ടും കണക്കിലെടുത്താണ് തീരുമാനം

ഭറൂച്ചിലെ പട്ടേൽ വെൽഫെയർ ആശുപത്രിയിലാണ് ഇന്ന് പുലർച്ചെ തീപിടുത്തമുണ്ടായത്

സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റൂപാനിയും അനുശോചനം രേഖപ്പെടുത്തി